കെടുതികൾ വ്യാപകം

വിതരണത്തിന് കാലതാമസ്ക് ഉണ്ടാകരുതെന്ന് ജില്ലാകളക്ടർമാർക്ക് മുഖ്യമ്പ്രിയുടെ നിർദ്ദേശം

നേരിടുന്ന ജലന്ധർ രൂപതാ ബിഷപ്പിന്റെ മൊബൈൽ രേഖകൾ ഹാജരാക്കാൻ സേവന ദാതാക്കൾക്ക് കോടതി നിർദ്ദേശം

കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും അറബിക്കടലിന്റെ വടക്ക് തെക്ക് പടിഞ്ഞാറൻ മേഖലകളിലും മത്സ്യബന്ധനത്തിനായി പോകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കനത്ത മഴയെ തുടർന്ന് കേരളത്തിലുടനീളം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്

വോയിസ് വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലും കൃഷിനാശവും ഉണ്ടായി കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് ജനജീവിതം ദുഷ്കരമായി

കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പൂർണമായും വെള്ളത്തിലായി എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകളെല്ലാം വെള്ളത്തിനടിയിലാണ്

ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിൽ മരം വീണു ആളപായമില്ല ഇതേ തുടർന്ന് ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകളെല്ലാം വൈകി ഓടുകയാണ്

കോട്ടയത്തും സ്ഥിതി വൃത്യസ്ഥമല്ല ചേർത്തല റൂട്ടിൽ മരം കടപൂഴകി ഗതാഗതം തടസ്സപ്പെട്ടു ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പുയർന്നു മൂഴിയാർ മണിയാർ അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്

കോഴിക്കോട് പുതിയങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്ന മൂന്ന് കാറുകളും നിർത്തിയിട്ടിരുന്ന കാറും മരം വീണ് തകർന്നു

രണ്ടു ദിവസമായി തുടരുന്ന മഴയ്ക്ക് ജില്ലയിൽ ഇന്ന് ശമനം ഉണ്ടായെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പടിഞ്ഞാറൻ മേഖലയിൽ കൂടുതൽ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേയ്ക്ക് മാറ്റി പാർപ്പിച്ചു

വീഡിയോ കോൺഫറൻസിംഗ് വഴി ജില്ലാ കളക്ടർമാരുമായി കാലവർഷക്കെടുതികൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം

ഇക്കാര്യത്തിൽ ജില്ലാകളക്ടർമാർ കൂടുതൽ ജാഗ്രത പുലർത്തണം വെള്ളപ്പൊക്കമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം പകർച്ചവ്യാധിക്കെതിരെ മുൻകരുതൽ എടുക്കണമെന്നും അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ആശുപത്രികൾ സജ്ജമായിരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അസുഖ ബാധിതർ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും മുഖ്യമന്ത്രി കളക്ടർമാരോട് ആവശ്യപ്പെട്ടു

വിവിധ ജില്ലകളിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി വിലയിരുത്തി റവന്യൂമന്ത്രി ഇ ചന്ദ്രശേഖരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു

പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ കൂടുതൽ പണം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വദേശ് ദർശൻ പ്രസാദ് പദ്ധതികളുടെ കേരളത്തിലെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കൊച്ചിയിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

വനം വകുപ്പുമായി ബന്ധപ്പെട്ട അനുമതികൾ ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് സ്വദേശ് ദർശൻ പദ്ധതികൾ വൈകിപ്പിക്കുന്നത് എന്നാൽ ഹൈക്കോടതിയെ സമീപിച്ച് ഇവയ്ക്കുള്ള അനുമതി വാങ്ങാമെന്ന് ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു

ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണവും അതിൽ നിന്നുള്ള വരുമാനവും മൂന്ന് വർഷം കൊണ്ട് ഇർട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു

ടടടടടടടടടടടടടട പീഡനം കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന ആരോപണം നേരിടുന്ന ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മൊബൈൽ രേഖകൾ ഹാജരാക്കാൻ മൊബൈൽ സേവന ദാതാക്കളോട് പാലാ മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്

തലയ്ക്കേറ്റ ക്ഷതം മുലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്

ഇതിൽ ഒരാളെ പൊലീസ് അറസ്റ്റ് ചെയ്തിരുന്നു

ഐ എറണാകുളം പ്രസ്സ് ക്സബ്ബിൽ വാർത്താസമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എസ്

മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും എസ്

ഐ നേതാവുമായ അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ വിശദീകരണം നൽകാനാണ് എസ്

ഏഴ് ഇവരെ പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്

ഇന്ത്യയ്ക്കു വേണ്ടി അമൻ ആകാശ്കുമാർ എസ് ബരുൺ സിംഗ് വിജയ്ദ്വീപ് നീതു ദിവൃപവാർ ലളിത എന്നിവരാണ് സ്വർണം നേടിയത്

അതിനാവശ്യമായ നിയമപരമായ എല്ലാ അനുവാദങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ ധനകാര്യ മന്ത്രി ശ്രീ കെ

മാണിയും ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു

പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നോർത്ത് ചിറയിൻകീഴ് താലൂക്കുകളിലാണ് ആദ്യം പദ്ധതി നടപ്പാക്കുക

ട്ടടടടടടടടടടടട സുരക്ഷിത പാത ദിനംപ്രതി പതിനായിരകണക്കിനാളുകൾ വിവിധ ആവശൃങ്ങൾക്കായി എത്തുന്ന തിരുവനന്തപുരം തമ്പാനൂരിൽ കാൽനടയാത്രികർക്ക് റോഡ് മുറിച്ചുകടക്കുന്നതിന് സുരക്ഷിതമായ സംവിധാനമൊരുക്കുന്ന തിനായി സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് സംസ്ഥാനമനുഷ ്യാവകാശ കമ്മീഷൻ